പശ്ചിമ ബംഗാ ളിലാണ് ഉയർന്ന പോളിങ്ങുണ്ടായത്

മൂന്നു ഘട്ടമായേ മണ്ഡലത്തിലെ പോളിങ് പൂർത്തിയാകൂ

ചെറിയ സംഘർഷങ്ങൾ ഒഴിച്ചുനിർത്തി യാൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു കാസർകോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കള്ളവോട്ട് നട ന്നതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ സ്ഥിരീകരിച്ചു

കളളവോട്ട് ചെയ്ത ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപെടെ മൂന്ന് പേർക്കെതിരെ ക്രിമിനൽ കേസെടു ക്കും ഇതിനു പുറമെ ഇവരുടെ അംഗത്വം റദ്ദാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടു മെന്നും ടിക്കാറാം മീണ തിരുവനന്തപുരത്ത് അറിയിച്ചു ബൂത്തിലെ റീപോളിങ്ങിനെ പറ്റി തെരഞ്ഞടുപ്പ് കമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം അറിയിച്ചു

കള്ളവോട്ട് വിഷയത്തിൽ മുസ്ലിംലീഗ് നിയമപരമായ വഴികൾ തേടുമെന്ന് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

മജീദ് പറഞ്ഞു സംഭവത്തിൽ മുസ്ലിംലീഗ് ശക്ത മായി പ്രതിഷേധിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു

ബിജെപി സംസ്ഥാനത്ത് അക്കൌണ്ട് തുറക്കില്ലെന്ന് യോഗം വിലയിരുത്തിയതായും കെ

മജീദ് പറഞ്ഞു ആലപ്പുഴ മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിൽ കള്ള വോട്ടിങ്ങുണ്ടായെന്ന പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു കായംകുളത്ത് എൽഡിഎഫ് കൌൺസലറും മാവേലിക്കര യിൽ എസ്എഫ്ഐ പ്രവർത്തകയും കള്ളവോട്ട് ചെയ്തെ ന്നാണ് യുഡിഎഫ് ആരോപണം

ഇൌസ്റ്റ് കടുങ്ങല്ലൂർ സർവീസ് കോ ഓപറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറി യത്തിലാണ് റീപോളിങ്

ബൂത്ത് പരിധിയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും പോളിങ് സ്റ്റേഷനായ ഈസ്റ്റ് കടുങ്ങല്ലൂർ സർവീസ് കോ ഓപറേറ്റീവ് ബാങ്കിനും ജില്ലാ കല

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി അധ്യക്ഷൻ അമിത് ഷാ കോൺഗ്രസ് അധൃക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവർക്കെ തിരായ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘന പരാതികളിൽ തീരു മാനമെടുക്കാൻ സമ്പൂർണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും രാവിലെ ചേരുന്ന യോഗം പരാ തികളിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച്ചെയ്ത് തീരുമാ നിക്കുമെന്ന് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ചന്ദ്രഭൂഷൺ കുമാറും സന്ദീപ് സക്സേനയും അറിയിച്ചു

വാരണാസിയിൽ സമാജ് വാദി പാർട്ടി പ്രധാനമന്ത്രി നരേ ന്ദ്രമോദിക്കെതിരെ മുൻ ബിഎസ്എഫ് ജവാൻ തേജ് ബഹാ ദൂറിനെ സ്ഥാനാർത്ഥിയാക്കി സേനാംഗങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം ഗുണനിലവാരം ഇല്ലാത്തതാണെന്ന് കാണിച്ച് സാമൂ ഹ്യമാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ബിഎസ്എഫ് കോൺസ്റ്റബ്ൾ ആണ് തേജ് ബഹാദൂർ കക്ഷിരഹിതനായി മത്സരിക്കാൻ തീരുമാനിച്ച തേജിനെ സമാജ് വാദി പാർട്ടി പിന്തുണക്കുകയായിരുന്നു ഫോനി ഇന്നലെ വൈകീട്ടോടെ തീവ്രൂചിുഴലിക്കാറ്റായി മാറിയതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ന്യൂഡൽഹിയിൽ അറിയിച്ചു

ഇതെ തുടർന്ന് ഒഡിഷ തീരത്ത് ദേശീയ ദുരന്തനിവാ രണ സേനയോടും കോസ്റ്റ് ഗാർഡിനോടും ജാഗ്രത പുലർത്താൻ കേന്ദ്രം നിർദേശം നൽകി

ചുഴ ലിക്കാറ്റിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നും നാളെയും കനത്ത മഴക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അറിയിച്ചു ഇന്ന് എറണാകുളം മലപ്പുറം വയ നാട് ജില്ലകളിൽ കനത്ത മഴ ഉണ്ടാകുമെന്ന യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്

റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേസിൽ എൻ ഐ എ കൊച്ചിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കറാണ് അറസ്റ്റിലായത് സംസ്ഥാ നത്ത് ചാവേറാക്രമണം നടത്താൻ പ്രതി പദ്ധതിയിട്ടിരുന്ന തായി എൻ ഐ എ

ഇതിനുപുറമെ ശ്രീലങ്ക സ്ഫോടനത്തിനു പിന്നിൽ പ്രവർത്തിച്ച സ്ഫ്രാൻ ഹാഷിമു മായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നും എൻ ഐ എ വെളിപ്പെ ടുത്തി ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മറ്റു രണ്ടുപേരെ കൂടി എൻ ഐ എ ചോദ്യം ചെയ്തുവരികയാ ണ് മുതിർന്ന മാധ്യമപ്രവർത്തകനും ഡൽഹി ആകാശവാണി യിലെ മുൻ മലയാള വാർത്താ അവതാരകനുമായിരുന്ന ഗോപൻ അന്തരിച്ചു

വാർത്ത വായനക്ക് സ്വന്തമായ ശൈലിയും അവതരണ രീതിയും നൽകിയ ഗോപൻ എന്ന എസ്

അപ്പപ്പാറ മേഖലയിൽ കർണാടകയിൽ കൂലിവേലയ്ക്ക് പോകുന്നവരും നിത്യസന്ദർശകരുമായ ആളുകൾക്കാണ് കുര ങ്ങുപനി അധികവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യയും ഐ ടി കമ്പനി യായ ഇൻആപും ദേശീയ തലത്തിൽ മികച്ച എഞ്ചിനീയ റിങ് പ്രൊജക്ടുകൾക്ക് നൽകുന്ന സ്റ്റുഡന്റ് സ് പ്രൊജക്ട് അവാർഡിന് തിരുവനന്തപുരം ശ്രീചിത്തിര തിരുനാൾ കോളജ് ഓഫ് എഞ്ചിനീയറിങ് അർഹരായി

ഏലൂരിലെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് കമ്പനി രാവിലെ മോക്ഡ്രിൽ നടത്തും

ഇതിൽ ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്ന് കമ്പനി മാനേജ്മെന്റ് അറിയിച്ചു